സ്ഥാനത്തിനായി ഇംഗ്ലണ്ടും ബെൽജിയവും ഇന്ന് മത്സരിക്കും

വാരണാഫ്പിട്ട് അസംഗർ മിർസാപൂർ ജില്ലകൾ സന്ദർശിക്കുന്ന അദ്ദേഹം പ്രിപ്പിധ് വികസന പദ്ധതികൾക്ക് തറക്കല്ലിടും

പ്രധാനമന്ത്രി വാരാണസിയിൽ തൊള്ളായിരം കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ രാഷ്ട്രത്തിന് സമർപ്പിക്കും നാളെ ശ്രീ മോദി മിർസാപൂറിൽ ബെൻസാഗർ കനാൽ പദ്ധതി രാഷ്ട്രത്തിനു സമർപ്പിക്കും മിർസാപൂർ മെഡിക്കൽ കോളേജിന് പ്രധാനമന്ത്രി തറക്കല്ലിടും

പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും

വിദേശകാര്യമന്ത്രിയുമായി മനാമയിൽ നടക്കുന്ന ഉന്നതതല സംയുക്ത യോഗത്തിൽ അവർ പങ്കെടുക്കും ബഹ്റിനിലെ ഇന്ത്യൻ സമൂഹത്തെ വിദേശകാര്യമന്ത്രി അഭിസംബോധന ചെയ്യും ഇരുരാജ്യങ്ങളും തമ്മിൽ പുതിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ശ്രീമതി സുഷമ സ്വരാജിന്റെ ബഹ്റിൻ സന്ദർശനം അവസരമൊരുക്കുമെന്ന് വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു

ജെ

ഹൈദ്രാബാദിൽ ബി ജെ പി നേതാക്കളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ അമിത്ഷാ

മുഖ്യ സൂത്രധാരൻ ജഗദീഷ് സാഗർ പരീക്ഷ ബോർഡിലെ രണ്ട് അംഗങ്ങൾ എന്നിവർക്കെതിരെയാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിയമ പ്രകാരം കുറ്റപത്രം സമർപ്പിച്ചത്

രാജ്യത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ ഒന്നായ പുരി രഥയാത്ര ആഷാഢ ശുക്സ ദ്വിതീയ ദിനത്തിലാണ് ആഘോഷിക്കുന്നത് ഭഗവാൻ ജഗന്നാഥനേയും മൂത്ത സഹോദരൻ ബാലഭദ്രനേയും സഹോദരി ദേവി സുഭദ്രയേയും വഹിച്ച് കൊണ്ടുള്ള രഥം പുരിയിലെ വീഥിയിൽ എത്തുന്നതാണ് രഥയാത്ര

നാഗ്പൂരിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതിലൂടെ ജനങ്ങളുടെ തൊഴിൽ ദിനങ്ങൾ വർദ്ധിക്കുകയും വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ പ്രോത്സാഹനം ലഭിക്കുകയും ചെയ്യുമെന്ന് മന്ത്രി പറഞ്ഞു

നവാസ് ഷെരീഫിന്റെ ഭാര്യയുടെ ചികിത്സാർത്ഥമാണ് ഇവർ ലണ്ടനിൽ പോയത് ഇരുവരേയും റാവൽ പിണ്ടിയിലെ അടിആല ജയിലിലേയ്ക്ക് മാറ്റിയതായി പാകിസ്ഥാൻ മുസ്ലീം ലീഗ് എൻ വക്താവ് അറിയിച്ചു

ലണ്ടനിൽ ആഡംബര ഫ്ളാറ്റ് വാങ്ങുന്നതിനുള്ളി സാമ്പത്തിക ഉറവിടം തെളിയിക്കാൻ ഷെരീഫിനും മകുൾക്കും മകളുടെ ഭർത്താവിനും കഴിഞ്ഞില്ലെന്നും കോടതി ുനീരീക്ഷിച്ചു ഇതോടെ ഷെരീഫിന് പൊതുതെരഞ്ഞെടുപ്പിലും മത്സരിക്കാനാവില്ല ഇതിനിടെ ഷെരീഫും മുകളും പാകിസ്ഥാനിൽ തിരിച്ചെത്തിയതിനെ തുടർന്ന് പി

എൽ എൻ പ്രവർത്തകരും പൊലീസും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ അമ്പതോളം പേർക്ക് പരിക്കേറ്റു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി അറുന്നൂറോളം പാർട്ടി പ്രവർത്തകരെ പൊലീസ് അറസ്റ്റ് ചെയ്തു

ജെ പി യുടെ നേതൃത്വത്തിലുള്ള എൻ

എ ഗവൺമെന്റ് കർഷക ക്ഷേമം മുൻനിർത്തി നിരവധി പദ്ധതികളാണ് രാജ്യത്ത് നടപ്പാക്കിയതെന്ന് കേന്ദ്ര ഗവൺമെന്റ് കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം പദ്ധതികൾ നടപ്പാക്കിയത് ഇത്തരത്തിൽ കർഷകോപകാര പ്രദമായ പദ്ധതിയാണ് പ്രധാനമന്ത്രി കാർഷിക ജലസേചന പദ്ധതി

മികച്ച ജലസേചനത്തിലൂടെ കാർഷികോത്പാദനം വർദ്ധിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം എല്ലാ കൃഷിയിടങ്ങളിലും വെള്ളം ഒരോ തുള്ളിയിലും മികച്ച വിളവ് എന്നതാണ് ഈ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്

ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട് പൊതു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ടാണ് ഭീകരാക്രമണം അഴിച്ചുവിടുന്നതെന്ന് ബലൂചിസ്ഥാൻ ആഭ്യന്തരമന്ത്രി ആഖാ ഉമർ ആരോപിച്ചു

ഈ മാസം ആറിനാണ് ചർച്ച നിശ്ചയിച്ചിരുന്നത് എന്നാൽ യു എസ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മൈക്കിൾ ആർ പോംപിയോയുടെ ഉത്തരകൊറിയൻ സന്ദർശനത്തെ തുടർന്ന് മാറ്റിവയ്ക്കുകയായിരുന്നു ഇരുരാജ്യങ്ങളും തമ്മിൽ പ്രതിരോധ സുരക്ഷാ മേഖലകളിൽ സഹകരണം ശക്തമാക്കുന്നത് സംബന്ധിച്ചാണ് ടു പ്ലസ് ടു ചർച്ച ചെയ്യുന്നതെന്ന് ശ്രീമതി

വിദേശകാരൃമന്ത്രി സുഷമ സ്വരാജും രാജ്യരക്ഷാമന്ത്രി നിർമ്മലാ സീതാരാമനും ഇതിന്റെ ഭാഗമായി അമേരിക്ക സന്ദർശിക്കുന്നുണ്ട്

എസ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റുമായും പ്രതിരോധ സെക്രട്ടറിയുമായും ഇരുവരും ചർച്ച നടത്തും

കുൽദീപ് യാദവ് ആറ് വിക്കറ്റും രോഹിത് ശർമ്മ നേടി

അവസാന ഏകദിന മത്സരം ചൊവ്വാഴ്ച നടക്കും

തീം മ്യൂസിക് ലോക കപ്പ് ഫുട്ബോളിൽ മൂന്നാം സ്ഥാനത്തിനായി ഇംഗ്ലണ്ടും ബെൽജിയവും തമ്മിലുള്ള പോരാട്ടം ഇന്ന് നടക്കും

ഫ്രാൻസും ക്രോയേഷ്യയും തമ്മിലുള്ള ഫൈനൽ നാളെ നടക്കും

കഴിഞ്ഞ യു

ഓപ്പണിൽ രണ്ടാം സ്ഥാനക്കാരനായിരുന്നു ആന്റേഴ്സൺ വർഷങ്ങൾക്കു ശേഷമാണ് ഒരു ദക്ഷിണാഫ്രിക്കൻ താരം വിമ്പിൾഡൺ ഫൈനലിൽ എത്തുന്നത് റഫേൽ നദാലും നോവാക് ദ്യോകോവിച്ചും തമ്മിൽ നടന്ന മറ്റൊരു സെമി മത്സരം മൂന്ന് സെറ്റുകൾക്ക് ശേഷം തടസ്സപ്പെട്ടിരുന്നു മത്സരം ഇന്ന് പുനരാരംഭിക്കും